പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻകിബാത്ത് ഇന്ന് രാവിലെ ഇന്ത്യൻ ചരിത്രകോൺഗ്രസ് ഉദ്ഘാടനത്തിനിടെ ചരിത്രകാൻ ഇർഫാൻ ഹബീബ് പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ത്രീകൾക്കുനേരെ വർധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരേ പൊതുബോധം ഉയർത്തുന്നതിന് സംസ്ഥാനത്ത് ഇന്ന് നൈറ്റ് വാക്ക് സംഘടിപ്പിക്കും ജാർഖണ്ഡിൽ ഹേമന്ത് സോരന്റെ നേതൃ ത്വത്തിൽ ജെ

എം കോൺഗ്രസ് ആർ

മഹാസഖ്യമന്ത്രിസഭ ഉച്ച കഴിഞ്ഞ് അധികാരമേൽക്കും ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ കേസുകളുടെയും അന്വേഷണങ്ങളുടെയും ആശങ്കയില്ലാതെ ബാങ്കു കൾ വായ്പ അനുവദിക്കണമെന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ നിർദ്ദേ ശിച്ചു ന്യൂഡൽഹിയിൽ ബജറ്റിന് മുന്നോടിയായി ചേർന്ന പൊതുമേ ഖലാ ബാങ്ക് തലവൻമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

അന്വേഷണത്തെക്കുറിച്ച് ഭയമില്ലെങ്കിലേ തീരു മാനമെടുക്കുന്ന പ്രക്രിയ വേഗത്തിലാവൂ എന്ന് ധനമന്ത്രി പറഞ്ഞു ബാങ്കു കൾ തീരുമാനിച്ചാൽ അല്ലാതെ ഒരുകേസും സി ബി ഐ യ്ക്ക് വിടി ല്ലെന്നും നിർമല സീതാരാമൻ വൃക്തമാക്കി

ആകാശവാ ണിയുടെ എല്ലാ നിലയങ്ങളും ന്യൂസ് വെബ്സൈറ്റും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പും ഇത് പ്രക്ഷേപണം ചെയ്യും ദൂരദർശൻ ചാനലു കളും ആകാശവാണിയുടെ യൂട്യൂബ് ചാനലും തത്സമയം മൻകിബാത്ത് സംപ്രേഷണം ചെയ്യും പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാലുടൻ അതിന്റെ മലയാള പരിഭാഷ കേരള നിലയങ്ങളിൽ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവുമുണ്ടാകും കണ്ണൂർ സർവകലാശാലയിൽ ഇന്ത്യൻ ചരിത്രകോൺഗ്രസ് ഉദ്ഘാ ടനം ചെയ്യുന്നതിനിടെ ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ പറ ഞ്ഞു ഭിന്നാഭിപ്രായത്തോട് കാണിക്കുന്ന ഇത്തരം അസഹിഷ്ണുതകൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു സ്റ്റേജിലും സദ സ്സിലുംനിന്ന് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമമുണ്ടായെന്നും ചിത്ര ങ്ങൾ സഹിതം ട്വിറ്ററിൽ ഗവർണർ അറിയിച്ചു ഭരണഘടന സംരക്ഷി ക്കാൻ ബാധ്യതപ്പെട്ട വ്യക്തിയെന്ന നിലയിൽ നേരത്തെ പ്രസംഗിച്ചവർ ഉന്നയിച്ച കാര്യങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഗവർണർ വൃക്തമാക്കി മൌലാന അബുൽകലാം ആസാദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇർഫാൻ ഹബീബ് ഗോഡ്സെയെക്കുറിച്ച് പറയണമെന്ന് ആക്രേശിച്ചെന്നും ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും എ

യെയും തള്ളിമാറ്റിയെന്നും ഗവർണറുടെ ഓഫീസ് ടിറ്ററിൽ കുറ്റപ്പെ ടുത്തി മാധ്യമസ്വാതന്ത്ര്യം വംശനാശ ഭീഷണിയിലാണെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എൻ റാം അഭിപ്രായപ്പെട്ടു കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൽ എസ്

മിശ്ര സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

സാമ്പത്തികമായ സമ്മർദ്ദമാണ് മാധ്യമങ്ങളെ ദുർബലപ്പെടുത്തുന്ന പ്രധാന ഘടകമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യ സുരക്ഷയ്ക്ക് വിവിധ ശാസ്ത്രീയ പദ്ധതികൾക്കായി ഊർജ്ജ സ്വലരായ സേനാംഗങ്ങളെപ്പോലെയാണ് ശാസ്ത്രജ്ഞർ പ്രവർത്തിക്കു ന്നതെന്ന് ഇന്ത്യയുടെ മിസൈൽ വനിത ഡോ ടെസ്സി തോമസ് പറഞ്ഞു

വ്യക്തിഗത പരീക്ഷണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഏറ്റവുംനല്ല അവസരമാണ് സയൻസ് കോൺഗ്രസ് എന്നും ഡോ ടെസ്സി തോമസ് പറഞ്ഞു മനുഷ്യരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഭൂമിയെ വിനിയോഗിക്കു കയും ഇതിനെ ഒരു വസ്തുവാക്കി മാറ്റുകയും ചെയ്തതോടെ കേരള ത്തിൽ ഒരു കൃഷിക്കും ഭാവിയില്ലാത്ത അവസ്ഥ സംജാതമാവുകയാ ണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിഭാഗം തലവൻ ഡോ മുരളി തുമ്മാരുകുടി പറഞ്ഞു തൊടുപുഴയിൽ ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷികമേളയോടനുബന്ധിച്ച് നീർത്തട വിക സനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അദ്ദേഹം പുതുതലമുറയ്ക്ക് ആയിരക്കണക്കിന് തൊഴിലവസ രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് കാർഷികമേഖല എന്നും കൃഷി യുടെ അടിസ്ഥാന ധർമത്തിൽനിന്ന് വൃതിചലിക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകരുതെന്നും മുരളി തുമ്മാരുകുടി പറഞ്ഞു ഇന്ന് തെങ്ങും ഇടവിളകളും വിഷയത്തിൽ സെമിനാർ സംഘ ടിപ്പിക്കും പൌരത്വനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ ചർച്ചചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും മത സാമൂഹിക സംഘടനാ നേതാക്കളു ടെയും യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും നിയമത്തെ ക്കുറിച്ച് ആശങ്കകൾ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളുമായി പ്രതി പക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് കന്റോൺമെന്റ ഹൌസിൽ ചർച്ച ചെയ്യും

സ്ത്രീകൾക്ക് അന്യമാകുന്ന പൊതുഇടങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം വനിതാദിനമായ മാർച്ച് എട്ടുവരെ ഗ്രാമപഞ്ചായത്തുകൾ മുനി സിപ്പാലിറ്റി എന്നിവിടങ്ങളിലും നൈറ്റ് വാക്ക് ഉണ്ടാകും വനിതാ ജീവന ക്കാർ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ ജനപ്രതിനിധികൾ വനിതാ റസിഡന്റ് സ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെ ടുത്തിയാണ് നൈറ്റ് വാക്ക് കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷൻ പുതിയ ബസ്റ്റാൻഡ് ബീച്ച് എന്നി വിടങ്ങളിൽ ആരംഭിച്ച് മാനാഞ്ചിറയിൽ നൈറ്റ് വാക്ക് സമാപിക്കും വയ നാട്ടിൽ കൽപ്പറ്റ മാനന്തവാടി സുൽത്താൻബത്തേരി നഗരസഭകൾ കേന്ദ്രീകരിച്ച് ഒൻപതിടങ്ങളിലാണ് നൈറ്റ് വാക്ക് നടക്കുന്നത് ജാർഖണ്ഡിൽ ഹേമന്ത് സോരന്റെ നേതൃത്വത്തിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച കോൺഗ്രസ് ആർ

മഹാസഖ്യ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും റാഞ്ചിയിൽ ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ദ്രൌപതി മുർമു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സൃത്യവാചകം ചൊല്ലിക്കൊടുക്കും മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി രാഹുൽഗാന്ധി ശരത്പവാർ പ്രിയങ്കാ ഗാന്ധി തുട ങ്ങിയ നേതാക്കളും പശ്ചിമബംഗാൾ ഡൽഹി മധ്യപ്രദേശ് ഛത്തീസ്ഗ ഡ് മഹാരാഷ്ട്ര രാജസ്ഥാൻ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേ ഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോഗോൾ നേടി രണ്ടുഗോളുകളും പിറന്നത് പെനാൾട്ടി യിലായിരുന്നു പത്ത് മത്സരങ്ങളിൽനിന്ന് എട്ട് പോയിന്റുനേടിയ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലീഗിൽ ഒമ്പതാം സ്ഥാനത്താണ്

ഇന്ന് ബാഡ്മിന്റൺ ടേബിൾ ടെന്നീസ് സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടക്കും മേള ഇന്നു സമാപിക്കും രാവിലെ ഗെയിംസ് മത്സരങ്ങളിലെ വിജയികൾക്ക് മന്ത്രി ടി

രാമകൃഷ്ണൻ ട്രോഫി സമ്മാനിക്കും വൈകീട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം എം

രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും ലുധിയാനയിൽ സമാപിച്ച സീനിയർ നാഷണൽ ബാസ്കറ്റ്ബോൾ ചാമ്പൃൻഷിപ്പിൽ വനിതാവിഭാഗത്തിൽ കേരളത്തെ പരാജയപ്പെടുത്തി റെയിൽവേ കിരീടം നിലനിർത്തി കേരളത്തിന്റെ ജീനാ സ്കറിയയെ ചാമ്പൃൻഷിപ്പിലെ വിലയേറിയ താരമായി തിരഞ്ഞെടുത്തു പുരുഷവി ഭാഗത്തിൽ തമിഴ്നാടിനെ പരാജയപ്പെടുത്തി ്പഞ്ചാബ് കിരീടം തിരിച്ചു പിടിച്ചു കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന നോർത്ത്സോൺ യൂത്ത് വോളി ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് കിരീടം നിലനിർത്തി പാലക്കാ ടിനെയാണ് കോഴിക്കോട് തോൽപ്പിച്ചത്

അക്കാഡമിയിൽ പരിശീലനം മ ഗൈൻ ന ൽ കി മത്സ്യബന്ധനയാനങ്ങളിലെ സ്രാങ്കുകൾക്ക് ലൈസൻസ് ലഭ്യമാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു സേഫ് കൊല്ലം പദ്ധതിയുടെ ഭാഗമായ തീരസേനയ്ക്കൊരു ലൈസൻസ് പദ്ധതി പ്രകാരം വാഹന ലൈസൻസ് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങ് കൊല്ലം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണി ഫെബ്രുവരി ആദ്യവാരം തുടങ്ങുമെന്ന് മന്ത്രി ഡോ

ഷട്ടറിന്റെ ചോർച്ച പരിഹരിക്കു ന്നതുൾപ്പെടെ പ്രവൃത്തിയുടെ ഒന്നാംഘട്ടം ജൂണിൽ പൂർത്തീകരിക്കും അതിനുശേഷം പരീക്ഷണാടി സ്ഥാനത്തിൽ വെള്ളം സംഭരിച്ച് നിർത്തും അടുത്ത സീസണിൽ രണ്ടാംഘട്ടവും പൂർത്തീകരിക്കുമെന്നും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന അവലോകനയോഗശേഷം മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമഗ്ര കാർഷിക പരിഷ്കാരം നടപ്പാക്കിയിട്ടും സംസ്ഥാനത്ത് ഉൽപാ ദന മേഖലയിൽ വർധന ഉണ്ടാകാത്തത് പരിശോധിക്കണമെന്ന് മന്ത്രി പി തിലോത്തമൻ ആലപ്പുഴയിൽ പറഞ്ഞു കേര കർഷകസംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി

ജില്ലയിലെ തദ്ദേശസ്ഥാ പനങ്ങൾ റീജ്യണൽ ടൌൺ പ്ലാനിങ് ഓഫീസർക്ക് സമർപ്പിച്ച മൂന്നാം ഘട്ട റിപ്പോർട്ടിലാണ് ഈ കെട്ടിടങ്ങൾ ഉൾപ്പെട്ടത് ചെല്ലാനം പഞ്ചായ ത്തിലാണ് ഏറ്റവും കൂടുതൽ നിർമിതികൾ കണ്ടെത്തിയത് പൌരത്വനിയമ ഭേദഗതി രാജ്യത്തിനനുകൂലമാണെന്ന് ഗവർണർ പറയുന്നത് സഹിക്കാനാവാത്തിനാലാണ് സി

എമ്മും കോൺഗ്രസും ഗവർണർക്കെതിരെ തിരിയുന്നതെന്ന് ബി

ദേശീയ അധ്യക്ഷൻ സി

സജിനാരായണൻ കോഴിക്കോട്ട് പറഞ്ഞു പൌരത്വ നിയമം സംബന്ധിച്ച പ്രശ് നങ്ങൾ താത് കാലിക പ്രതിഭാസമാണെന്നും സത്യം ജനങ്ങൾ മനസ്സി ലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ജില്ലയിൽ പട്ടയത്തിന് അപേക്ഷ നൽകിയവർക്ക് ആവശ്യ മായ രേഖകൾ ലഭ്യമാക്കുന്നതിന് എം

കണ്ണൂരിൽ ദേശീയ സരസ് മേളയിൽ ഇതുവരെ അഞ്ചു കോടിയുടെ വിൽപന